കുട്ടനാട്ടിൽ പുനരധിവാസം ഇന്ന് ആരംഭിക്കും

അർപ്പീന്ദർ സിങ്ങും സ്വപ്ന ബർമയുമാണ് സ്വർണം നേടിയത് ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം

രാവിലെ ഒൻപത് മുതൽ രണ്ട് വരെയാണ് സമ്മേ ളനം മുൻ പ്രധാനമന്ത്രി എ

വാജ്പേയി ലോക്സഭ മുൻ സ്പീക്കർ സോമനാഥ് ചാറ്റർജി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധി മുൻ എംഎൽഎ മാരായ ചർക്കളം അബ്ദുള്ള ടി

അറുമുഖം പ്രളയത്തിൽ ജീവൻ നഷ്ട്ടപ്പെട്ടവർ എന്നിവർക്ക് സഭ ചരമോപചാരം അർപ്പിക്കും

തുടർന്ന് നാലു മണിക്കൂർ ചർച്ച നടക്കും

പ്രളയദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ കടമെടുപ്പ് പരിധി വർദ്ധി പ്പിക്കണമെന്നതടക്കം കേരളത്തിന്റെ ആവശൃങ്ങൾ കേന്ദ്രം അനുഭാ വപൂർവ്വം പരിഗണിക്കുമെന്ന് ധനകാരൃ സഹമന്ത്രി പൊൻ രാധാകൃ ഷ്ണൻ അറിയിച്ചു സംസ്ഥാനം നിവേദനം സമർപ്പിക്കുന്നമുറക്ക് കൂടു തൽ സഹായം സംബന്ധിച്ച തീരുമാനം കേന്ദ്ര ഗവൺമെന്റ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രളയക്കെടുതികളുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് ക്ലെയിമുകൾ എത്രയും വേഗം തീർപ്പാക്ക ണമെന്ന് പൊതു സ്വകാരൃ ഇൻഷ്വറൻസ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായും കേന്ദ്രമന്ത്രി അറിയിച്ചു തിരുവനന്തപുരത്ത് സംസ്ഥാ നതല ബാങ്കേഴ്സ് സമിതി യോഗത്തെ അഭിസംബോധന ചെയ്യുക യായിരുന്നു പൊൻ രാധാകൃഷ്ണൻ

ബാങ്കുകൾ ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് നൽകുന്നതിനും നിക്ഷേപ രസീതിനും ചാർജ്ജുകൾ വേണ്ടെന്നു വെച്ചിട്ടുണ്ട് മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തിന് പിഴയും ഒഴിവാക്കി പുതിയ വായ്പകൾക്ക് നട പടികളും കൈക്കൊണ്ടിട്ടുണ്ട് നനഞ്ഞതും കേടുവന്നതുമായ നോട്ടു കൾ എല്ലാ ബാങ്ക് ശാഖകളിലും മാറ്റി നൽകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

കാർഷിക എം

എം വായ്പകൾക്ക് ഒരു വർഷത്തെ മോറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും പൊൻ രാധാകൃഷ്ണൻ പറഞ്ഞു

ടി കൌൺസിൽ അംഗീകാരം നൽകണമെന്നും മന്ത്രി ഡോ തോമസ് ഐസക് യോഗത്തിൽ ആവശ്യപ്പെട്ടു

ലൈഫ് ഇൻഷുറൻസും പ്രോപ്പർട്ടി ഇൻഷുറൻസും ചെയ്ത കർഷകർക്ക് അവരുടെ നഷ്ടപ രിഹാരത്തുക എത്രയും വേഗം ലഭ്യമാക്കണം സംസ്ഥാനത്തെ പ്രള യബാധിതർക്ക് ഒരു ലക്ഷം രൂപ വരെ കൺസ്യൂമർ ലോൺ അനുവദി ക്കണമെന്നും മന്ത്രി പറഞ്ഞു പ്രളയം മൂലം കേരളത്തിനുണ്ടായ നഷ്ടങ്ങളുടെ അവസാനകണക്ക് താമസിയാതെ കേന്ദ്രത്തിനു സമർപ്പി ക്കുമെന്നും ഡോ തോമസ് ഐസക് അറിയിച്ചു പ്രളയ ദുരിതത്തിൽ നിന്ന് ഉയർത്തെണീറ്റ് പുതിയൊരു കേര ളത്തെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ പറഞ്ഞു ലോക ബാങ്ക് ഏഷ്യൻ വികസന ബാങ്ക് പ്രതിനിധി സംഘവുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തുകയായിരുന്നു അദ്ദേ ഹം പ്രളയം സൃഷ്ടിച്ച നഷ്ടത്തിന്റെ വൃാപ്തി വളരെ വലുതാ ണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

അടുത്ത പത്ത് ദിവസത്തിനകം ലോക ബാങ്ക് പ്രതിനിധി സംഘം അടിയന്തര ദുരന്ത നാശനഷ്ടങ്ങളും ആവശൃങ്ങളും നിർണയിക്കും ഇതിനു ശേഷം ചീഫ് സെക്രട്ടറിയും വകുപ്പുതല സെക്രട്ടറിമാരു മായും ചർച്ച നടത്തി വായ്പാ ഘടന തയാറാക്കും കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള യാത്രയിൽ തങ്ങൾ ഒപ്പമുണ്ടാവുമെന്ന് പ്രതി നിധി സംഘം അറിയിച്ചു അപകടത്തിൽപ്പെട്ട സഹോദരങ്ങളെ സംരക്ഷിക്കണമെന്ന ഒറ്റ ചിന്തയോടെ ചാടിയിറങ്ങിയ മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിന്റെ ബിഗ് സല്യൂട്ട് സമർപ്പിക്കുന്നതായി മുഖ്യമന്ത്രി പിണ്റായി വിജയൻ പറഞ്ഞു പ്രളയ ദുരിതത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യ ത്തൊഴിലാളികൾക്ക് അദരമർപ്പിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ ആഭി മുഖൃത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘ ടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓഖി ഫണ്ട് വിനിയോഗം സംബന്ധിച്ച പ്രതിപക്ഷാരോപണത്തിന് മുഖ്യമന്ത്രി ഇതുവരെ കൃത്യമായി മറുപടി നൽകിയിട്ടില്ലെന്ന് പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഉത്തരവുകളുടേയും കണക്കുകളുടേയും പേരിൽ പുകമറ സൃഷ്ടിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദുരന്തത്തിൽ എത്ര പേർ മരിച്ചെന്നോ എത്ര പേരെ കാണാതാ യെന്നോ ഉള്ള കണക്കു പോലും ഗവൺമെന്റിന്റെ പക്കൽ ഇല്ല ഓഖി യുടെ ഗതി പ്രളയ ദുരിതാശ്വാസത്തിന് സംഭവിക്കരുതെന്നും ചെന്നി ത്തല പറഞ്ഞു കൂട്ടനാട്ടിൽ പുനരധിവാസം ഇന്ന് തുടങ്ങും ഇപ്പോഴും വീടുക ൾ വെള്ളത്തിൽ കിടക്കുന്ന കൈനകരി ഒഴികെ പ്രദേശങ്ങളിലാണ് പുനരധിവാസം നടപ്പാക്കുന്നത് കൂട്ടനാട്ടിലെ വീടുകളും പരിസരവും ശുചിയാക്കാനായി സംഘടിപ്പിച്ച മഹാശുചീകരണം ഇന്നലെ പൂർത്തി യായി

കുട്ടനാട് അമ്പലപ്പുഴ താലൂക്കു കളിൽ പ്രൊഫഷണൽ കോളജുകൾ ഉൾപ്പടെ വിദ്യാഭ്യാസ സ്ഥാപ നങ്ങൾക്ക് കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്

കേരളത്തിലെ ദുരിതാശ്ചാസ ക്യാമ്പുകളിലും പ്രളയ ബാധി തർക്കും നൽകാൻ ഭക്ഷ്യധാനൃം പൊതുവിതരണ വകുപ്പ് സംഭരിച്ചി ട്ടുണ്ടെന്ന് മന്ത്രി പി

ഭക്ഷ്യ ധാന്യത്തിന് ക്ഷാമമുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പറഞ്ഞു

ഏറ്റവും കൂടുതൽ നാശമുണ്ടായത് കുട്ടനാട്ടിലാണ് ഒരു മാസം കഴിഞ്ഞാൽ മാത്രമേ കൃഷി നാശത്തിന്റെ യഥാർത്ഥ കണക്ക് എടുക്കാൻ സാധിക്കൂ എന്നും മന്ത്രി അറിയിച്ചു പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനം തട്ടിയെടുക്കാൻ സിപിഐഎം ശ്രമിച്ചാൽ ചെറുക്കുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള പറഞ്ഞു മുൻ പ്രധാനമന്ത്രി എ

വാജ്പേയുടെ ചിതാഭസ്മവും വഹിച്ചുകൊണ്ടുള്ള യാത്ര കോഴിക്കോട്ട് എത്തിയ ശേഷം ചേർന്ന അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായി രുന്നു അദ്ദേഹം പത്രസ്വാതന്ത്ര്യത്തിനും ജനാധിപതൃത്തിനും വേണ്ടി വാജ്പേയ് നിലകൊണ്ടുവെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കെ

സി ഭാരവാഹികളുടേയും ഡിസിസി പ്രസിഡന്റുമാരുടേയും സംയുക്ത യോഗം ഇന്ന് വൈകീട്ട് തിരുവനന്തപുരത്ത് ചേരും ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്നലെ ഇരട്ട സ്വർണം പുരുഷ വിഭാഗം ട്രിപ്പിൾ ജംപിൽ അർപ്പീന്ദർ സിങ്ങും വനിതളുടെ ഹെപ്റ്റാത്തലണിൽ സ്വപ്ന ബർമനുമാണ് സ്വർണം നേടി യത്

ഒരു വെള്ളിയും ഒരു വെങ്കലവും ഇന്തൃക്ക് ഇന്നലെ ലഭിച്ചു ടേബിൾ ടെന്നിസ് മിക്സഡ് ഡബിൾസിലാണ് ഇന്ത്യക്ക് വെങ്കലം ലഭിച്ചത്

വനിതാ ഹോക്കിയിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ചൈനയെ കീഴടക്കി ഇന്ത്യ സെമിയിൽ എത്തി പുരുഷ ഹോക്കി സെമിയിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും

ചിത്രയും മോണിക്കാ ചൌധരിയും ഇന്ന് മത്സരിക്കുന്നുണ്ട്

ഉച്ച കഴിഞ്ഞ് മൂന്നരക്ക് സതാംപ്ടണ്ണിൽ മത്സരം ആരംഭിക്കും അഞ്ച് മത്സര പര മ്പരയിൽ ആദ്യ രണ്ട് മത്സരങ്ങളും ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ മൂന്നാം ടെസ്റ്റിൽ ഇന്തൃക്കായിരുന്നു ജയം

ഇന്ന് രാവിലെ ഏഴിന് ലൂസേഴ്സ് ഫൈനലും പത്തിന് ഫൈനൽ മത്സരവും നടക്കും സെപ്റ്റംബർ ആദ്യവാരം രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ആരംഭി ക്കുന്ന ദേശീയ ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ കേരള ടീമിനെ ഇന്ന് തെരഞ്ഞടുക്കും പ്രളയക്കെടുതിയെ തുടർന്ന് ട്രെയിനുകളുടെ വേഗം സാധാരണ നിലയിലാക്കുന്നതിന് ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്നു മുതൽ ഞായറാഴ്ച്ച വരെ ഗുരുവായൂർ പുനലൂർ ഗുരുവായൂർ കൊല്ലം പുനലൂർ കൊല്ലം പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കിയ തായി റെയിൽവെ അറിയിച്ചു കോഴിക്കോട് തൃശൂർ പാസഞ്ചർ ഷൊർണൂരിൽ യാത്ര അവ സാനിപ്പിക്കും

ഇന്നത്തെ കൊല്ലം താമ്പരം പ്രത്യേക ട്രെയിൻ കൊല്ലത്തിനും ചെങ്കോട്ടക്കുമിടയിൽ റദ്ദാക്കി

കണ്ണൂർ പിണറായി കൂട്ടക്കൊലക്കേസിലെ പ്രതി സൌമ്യ ജയിൽ വളപ്പിൽ തൂങ്ങി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തര മേഖലാ ജയിൽ ഡി

സന്തോഷ് തെളിവെടുപ്പ് നടത്തി ഇന്നലെ രാവിലെ മുതൽ വൈകീട്ട് വരെ നടന്ന തെളിവെടുപ്പിൽ ജയിൽ അധികൃതരിൽ നിന്നും തടവുകാരിൽ നിന്നും അദ്ദേഹം മൊഴി എടുത്തു കുട്ടനാട്ടിലെ പ്രളയത്തിനിടയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സിപിഐഎം പ്രദേശിക നേതാവ് എലിപ്പനി ബാധിച്ച് മരിച്ചു

ഇരിട്ടി പുതിയ ബസ്റ്റാന്റിനടുത്ത് മുസ്ലീംലീഗ് ഓഫീസ് കെട്ടിട ത്തിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ചും ബോംബുകളും ആയുധ ങ്ങളും കണ്ടെടുത്ത് സംബന്ധിച്ചും പൊലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി ഉഗ്രശേഷിയുള്ള ഐസ്ക്രീം ബോംബുകളാണ് പൊട്ടിത്തെറിച്ചതെന്ന് പൊലീസ് പറഞ്ഞു

ഹ്യൂമെൻ സൊസൈറ്റി ഇന്റർനാഷണൽ എന്ന അന്താരാഷ്ട്ര മൃഗസംരക്ഷണ സംഘമാണ് ജില്ലയിൽ എത്തിയത്

ശക്തമായ കാറ്റിലും മഴയിലും ഉരുൾപ്പൊട്ടലിലുമാണ് ജില്ലയിൽ നാശ മുണ്ടായത്